സുപ്രീംകോടതി ചീഫ്ജസ്റ്റിസായി കെ എം ജോസഫ് തിങ്ക ളാഴ്ച ചുമതലയേൽക്കും കീഴാറ്റൂരിലെ ബൈപ്പാസ് അലൈന്റ്മെന്റ് മാറ്റം ആത്മഹത്യാ പരമെന്ന് മന്ത്രി ജി സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകസ്ഥമിതിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു

ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിയിൽ പിവി സിന്ധു നാളെ ജപ്പാന്റെ അകാനെ യമഗൂച്ചിയെ നേരിടും മുല്ലപ്പെരിയാർ മേൽനോട്ടസമിതി ഇന്ന് അണക്കെട്ടിൽ പരി ശോധനക്കെത്തും മൂന്ന് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ കേരളത്തിലെത്തും തിരുവനന്തപു രത്തും കൊച്ചിയിലും തൃശൂരിലും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും നാളെ വൈകീട്ട് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന രാംനാഥ് കോവിന്ദ് രാജ്ഭവനിൽ തങ്ങും തിങ്കളാഴ്ച രാവിലെ നിയമസഭയുടെ വജ്രജൂബിലി ആഘോ ഷ സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി ഉദ്ഘാടനം ചെയ്യും

രാത്രി കൊച്ചിയിൽ തങ്ങുന്ന രാഷ്ട്രപതി ചൊവ്വാഴ്ച രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ജഡ്ജി മാർക്കുമൊപ്പം പ്രഭാതഭക്ഷണം കഴിച്ച ശേഷം തൃശൂർക്ക് പുറപ്പെ ടും തൃശൂരിൽ സെന്റ് തോമസ് കോളജിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം ഹെലികോപ്ടറിൽ ഗുരുവാ യൂർക്ക് പോകും

മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഒഡീഷ ചീഫ് ജസ്റ്റിസ് വിനീത് സരൺ എന്നിവ രെയും സുപ്രീംകോടതി ജഡ്ജിമാരാക്കിയിട്ടുണ്ട് കേരള ഹൈക്കോ ടതി ആക്ടിംങ് ചീഫ് ജസ്റ്റിസ് ഋഷിക്കേൾ റോയിയെ ചീഫ് ജസ്റ്റിസ് ആക്കാനും നിയമ മന്ത്രാലയം ഉത്തർവ് പുറപ്പെടുവിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയ്നും എഐസിസി ജനറൽ സെക്ര ട്ടറി ഉമ്മൻചാണ്ടിയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കൊച്ചിയിൽ ജപ്തിഭീഷണി നേരിടുന്ന പ്രീത ഷാജിയുടെ വിഷ യത്തിൽ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയതായി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ഡൽഹി ്കേരള ഹൌസിൽ മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലത്ത് കത്തിയുമായെത്തിയ യുവാവ് പിടിയിലായി ആലപ്പുഴ ചെട്ടികുളങ്ങര സ്വദേശി വിമൽ രാജാണ് കസ്റ്റഡിലായത്

ഇയാൾ മാനസികാസ്ഥ്യമുള്ള ആളാ ണെന്ന് പൊലീസ് അറിയിച്ചു

അടുത്ത ആഴ്ച പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയശേഷമായിരിക്കും പുനഃ സംഘടനയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മീശ പുസ്തക വിവാദത്തിൽ രാഷ്ട്രീയപാർട്ടികൾ ഇടപെടാ തിരിക്കുകയാണ് നല്ലത് രാഷ്ട്രീയപാർട്ടികൾ ഇടപെട്ട് ആ മുറി വിന് ആഴം കൂട്ടരുത് മീശ അധികം മുകളിലേക്ക് വളരാതിരിക്കു ന്നതാണ് നല്ലതെന്നും ശ്രീധരൻപിളള അഭിപ്രായപ്പെട്ടു കീഴാറ്റൂർ ബൈപ്പാസിലെ അലൈൻമെന്റ് മാറ്റത്തിനുള്ള കേന്ദ്ര നടപടി ആത്മഹത്യാപരമാണെന്ന് മന്ത്രി ജി സുധാകരൻ അഭിപ്രാ യപ്പെട്ടു

നിലപാട് തിരുത്താൻ കേന്ദ്രം തയാറാകണമെന്ന് അദ്ദേഹം തിരുവനന്തപു രത്ത് ആവശ്യപ്പെട്ടു

എഐസിസി ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുഗാന്ധിയുടെ അധൃക്ഷതയിലാണ് യോഗം ദേശീയപൌരത്വര ജിസ്റ്റർ റഫേൽ യുദ്ധവിമാന അഴിമതി ്എന്നിവ അടക്കം വിഷയ ങ്ങൾ യോഗം ചർച്ച ചെയ്യും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഭരണ ത്തിൽ നിന്ന് അകറ്റിനിർത്താൻ പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യം രൂപപ്പെടുത്തുന്നതിന് ഊന്നൽ നല്കിയായിരിക്കും പ്രവർത്തകസ മിതിയോഗം മുതിർന്ന് നേതാക്കളായ സോണിയാഗാന്ധി ഡോ മൻമോഹൻസിംഗ് എ കെ ആന്റണി ഗുലാംനബിആസാദ് അഹ മ്മദ് പട്ടേൽ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്

സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ അധ്യാപകരുടെ എണ്ണം നിയമനത്തി ലെയും ഉദ്യോഗകയറ്റത്തിലെയും സുതാര്യത തുടങ്ങിയ എഴുപ ത ൾ ങ്ങ വില യി രു ത്തി യാ യി രിക്കും ഗ്രേഡിം ഗ് സ് കുൾ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവ രാൻ ഗ്രേഡിംഗ് സമ്പ്രദായം സഹായിക്കുമെന്ന് മന്ത്രാലയം വില യിരുത്തി

സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലക ളുമായി ബന്ധപ്പെട്ട ജിഎസ്ടി പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്യും ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് ഭീകരരെ സൈന്യം വധിച്ചു കില്ലോറ ഗ്രാമത്തിൽ ഇനന് പുലർച്ചെയാണ് ഏറ്റുമുട്ടലു ണ്ടായത്

അതേസമയം വടക്കൻ കശ്മീരിലെ സോപ്പോറിൽ മറ്റൊരു ഏറ്റു മുട്ടലിൽ രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം പ്പ്ധിച്ചു ഒരു ജവാൻ വീരമൃത്യു വരിച്ചു

ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവത്തെ പറ്റി അന്വേഷണം ആരംഭിച്ചു അപകട കാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല

മരിച്ചവരുടെ ആശ്രി തർക്ക് ഗവ അഞ്ച് ലക്ഷംരൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു ലോക ബ്രാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിയിൽ ഇന്ത്യയുടെ പി വി സിന്ധു നാളെ ജപ്പാന്റെ അകാനെ യമഗൂച്ചിയെ നേരിടും നാൻജിങ്ങിൽ നിലവിൽ ചാമ്പൃനായ നൊസോമി ഒകുഹാരയെ തോൽപിച്ചാണ് സിന്ധു സെമിയിലെത്തിയത്

സുപ്രീം കോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ഇന്ന് അണക്കെട്ടിൽ പരിശോധനയ്ക്കെത്തും കേന്ദ്ര ജല കമ്മീഷനിലെ ഗുൽഷൻരാജ് ചെയർമാനായ സമിതിയിൽ ടിങ്കു ബിസ്വാൾ കേരളത്തെയും കെ എസ് പ്രഭാകർ തമിഴ്നാടിനെയും പ്രതിനിധീകരിക്കും ഉപസമിതി അംഗങ്ങളും ഇവർക്കൊ പ്പമുണ്ടാകും

അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ നീളരാഴുക്കിൽ കുറവുണ്ടായിട്ടുണ്ട്

ഓണം ബക്രീദ് ഖാദി മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നാളെ മന്ത്രി ടി പി ്രാമകൃഷ്ണൻ നിർവഹിക്കും

കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ആരംഭി ക്കുന്ന ഓപ്പൺ ജിം ഇന്ന് വൈകിട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പ ളളി ഉദ്ഘാടനം ചെയ്യും പയ്യാമ്പലം ബീച്ചിലാണ് ജിം പ്രവർത്തി ക്കുക

തിരു വനന്തപുരം വെള്ളറാഞ്ചിപ്പാറ സ്വദേശി ബിജുവാണ് മരിച്ചത് മദ്യ പാനത്തെ തുടർന്നുണ്ടായ ആരോഗ്യപ്രശ്നങ്ങളിൽ ഇയാൾ ചികി ത്സയിലായിരുന്നുവെന്ന് പൊലീസ് അറിയിച്ചു പോക്സോ കേസു മായി ബന്ധപ്പെട്ടായിരുന്നു ബിജു അറസ്റ്റിലായത് ഇരിട്ടി കൂട്ടുപുഴയിൽ കഞ്ചാവുമായി അഞ്ചംഗ സംഘം അറസ്റ്റി ലായി പുലർച്ചെ വാഹനപരിശോധനക്കിടെ ഇരിട്ടി എസ്ഐയും സംഘവുമാണ് കഞ്ചാവ് പിടിച്ചത് ബംഗളുരുവിൽ നിന്ന് മടങ്ങുക യായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘമാണ് പിടിയിലായ തെന്ന് പൊലീസ് അറിയിച്ചു ഇടുക്കി വണ്ണപുരം കമ്പകക്കാനത്ത് ബ്യൂധനാഴ്ച നടന്ന കൂട്ട ക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് തിരുമ്പനന്തപുരത്ത് ഒരാൾകൂടി കസ്റ്റഡിയിലായി പാങ്ങോട് സ്വദേശി ഷിബുവാണ് കസ്റ്റഡിയിലാ യത് ഇയാളെ അന്വേഷണസംഘം ച്യോദ്യം ചെയ്യുകയാണ് സർഗാത്മക കലാലയങ്ങളെ സൃഷ്ടിക്കുകയെന്ന ഉത്തരവാ ദിത്വമാണ് വിദ്യാർത്ഥി സംഘടനകൾ നിർവഹിക്കേണ്ടതെന്ന് പാണ ക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അക്രമത്തിന്റെയും സംഹാരത്തിന്റെയും മാർഗം സ്വീകരിച്ച് രക്ത സാക്ഷികളെ സൃഷ്ടിക്കാനുളളതല്ല വിദ്യാർത്ഥി രാഷ്ട്രീയമെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു

മലപ്പുറം ജില്ലാ പിഎസ് സി ഓഫീസ് ഏർപ്പെടുത്തിയ ഇ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുൻപാകെയാണ് വിചാരണ മഞ്ചേരി തുറക്കലിൽ കൈതകൊണ്ട സ്വദേശിയായ യുവാ വിൽ നിന്നും കാറും പണവും കവർന്ന് രക്ഷപ്പെട്ട കേസിലെ മുഖ്യപ്രതി കോയമ്പത്തൂരിൽ പിടിയിലായി പാലക്കാട് ചെത്ത ല്ലൂർ സ്വദേശി കീഴ്ശേരിമണ്ണിൽ ഷാനവാസാണ് മഞ്ചേരി പൊലീസ് പിടിയിലായത്